പരിശോധന വേഗത്തിലാക്കാൻ റാപ്പിഡ് ടെസ്റ്റിംഗ് സംവിധാനം ആരംഭിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത ലോക്ഡൌൺ കഴിയുന്നത് വരെ അതിഥി തൊഴിലാളികളെ വീടുകളിൽ നിന്ന് ഇറക്കിവിടുന്ന ഉടമസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

കെ ബാലൻ

സാമൂഹികക്ഷേമ സംഘടനകളുമായി ഡൽഹിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം മനുഷ്യരെ സേവിക്കുന്നതിൽ സംഘടനകൾ കാണിക്കുന്ന അർപ്പണബോധത്തെയും പ്രതിജ്ഞാബദ്ധയെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു

ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്ന കാസർകോട് ജില്ലയിലാണ് ഇന്നലെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

രുമ കോവിഡ് പരിശോധന കൂടുതൽ വേഗത്തിലാക്കാൻ റാപ്പിഡ് ടെസ്റ്റിങ് സംവിധാനം ആരംഭിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പായിപ്പാട്ട് അതിഥി തൊഴിലാളികളെ ഇളക്കിവിടാൻ ആസൂത്രിത ശ്രമം ഉണ്ടായെന്നും ഒന്നോ അതിലധികമോ ശക്തികൾ ഇതിനുപിന്നിൽ പ്രവർത്തിച്ചതായാണ് മനസിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചാനലുടമകൾ പേ ചാനൽ നിരക്കുകൾ ഒഴിവാക്കി സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുക നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ട് പായിപ്പാട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിച്ച അതിഥി തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പു വരുത്താൻ മന്ത്രി പി

ഗവൺമെന്റ് ഉത്തരവിറങ്ങുന്നതു വരെ തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകാനും വാടക വാങ്ങാതെ താമസസൌകര്യം ലഭ്യമാക്കാനും കെട്ടിട ഉടമകൾ തയ്യാറായി ലോക്ക്ഡൌണിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പു വരുത്താനും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായി

എസിൽ മരിച്ചത്

ഇറ്റലിയിൽനിന്ന് വന്ന സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നും രോഗം പിടിപെട്ട പത്തനംതിട്ടയിലെ തോമസ് മറിയാമ്മ ദമ്പതികളാണ് കൊറോണ രോഗബാധയിൽ നിന്ന് മോചിതരായത് ഒരു ഘട്ടത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവരെ മരണക്കയത്തിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് വിദഗ്ദ്ധ തിരിച്ച് കൊണ്ടുവന്നത് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിലെ എല്ലാ ജീവനക്കാരെയും മന്ത്രി കെ

ഒരാൾ ബഹ്റൈനിൽ നിന്നും ബാക്കിയുള്ളവർ ദുബൈയിൽ നിന്നുമാണ് ജില്ലയിലെത്തിയത്

മൂന്നു പേർ തുടർ പരിശോധനകളിൽ നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ പ്രതിനിധി കെ

ഇന്നലെ ഒരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചു ബൈസൺവാലി സ്വദേശിനിക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആന്റണി മുനിയറ

കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആകാശവാണി ലേഖകൻ ജയചന്ദ്രൻ

ഇയാളുടെ രണ്ടാംവട്ട പരിശോധന ഫലം ഇന്ന് വരും

അതിഥി തൊഴിലാളികൾക്ക് സ്വയം പാചകം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ വസ്തുക്കൾ സമൂഹ അടുക്കള വഴി വിതരണം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

രുര സംസ്ഥാനത്തെ പട്ടികജാതി പട്ടിക വർഗ്ഗ മേഖലയിൽ ഭക്ഷണ ദൌർലഭ്യം ഇല്ലാതിരിക്കാൻ പ്രത്യേക നടപടി സ്വീകരിച്ചതായി മന്ത്രി എ

പട്ടികജാതി സങ്കേതങ്ങളിൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു പട്ടികജാതി വികസന ഓഫീസർമാർ ഫീൽഡ്തല പരിശോധന നടത്തി ആവശ്യക്കാരായ എല്ലാവർക്കും ഭക്ഷ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പു വരുത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ദരദ പാചകവാതക വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനിടെ കൊവിഡ് രോഗബാധിതരായി തൊഴിലാളികൾ മരിച്ചാൽ അഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസം നൽകാൻ ഓയിൽ വിപണന കമ്പനികൾ തീരുമാനിച്ചു കേന്ദ്ര മന്ത്രി ധർമേന്ദ്ര പ്രധാൻ നടപടി സ്വാഗതം ചെയ്തു

ബാങ്കുകൾക്ക് പലിശയിനത്തിൽ ലഭിക്കേണ്ട തുകയുടെ രണ്ടു ശതമാനമാണ് ഗവൺമെന്റ് ഇളവുനൽകുക

ദ്രദ ട്രഷറികൾ മുഖേന സർവീസ് ഫാമിലി പെൻഷനുകളുടെ വിതരണം കൂടുതൽ ഘട്ടമായി പുനഃക്രമീകരിച്ചു

ദരദ മദ്യവിൽപ്പന ശാലകൾ അടച്ചിട്ടത് മൂലം മദ്യാസക്തി പ്രകടിപ്പിക്കുന്നവർക്ക് മദ്യം ലഭ്യമാക്കുന്നതിന് ലിക്വർ പാസ് നൽകുന്നത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് മാർഗനിർദേശം പുറപ്പെടുവിച്ചു മദ്യാസക്തി പ്രകടിപ്പിക്കുന്നവർ ഗവൺമെന്റ് ആശുപത്രിയിൽ പരിശോധനക്ക് വിധേയരായി ഡോക്ടറുടെ കുറിപ്പ് ഹാജരാക്കിയാൽ നിശ്ചിത അളവിൽ മദ്യം വിതരണം ചെയ്യാമെന്ന് ഇതുസംബന്ധിച്ച വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി രുക കൊല്ലം ജില്ലയിലേക്ക് അവശ്യസാധനങ്ങളായ അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ എന്നിവ സുഗമമായി എത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ അറിയിച്ചു ജില്ലയിൽ ജീവൻ രക്ഷാമരുന്നുകൾ കൊറിയർ സർവീസ് വഴി എത്തിച്ച് കൊടുക്കുന്നതിനും നടപടിയെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കി

ദ്രദ വയനാട്ടിൽ ഇന്നലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ കമ്പളക്കാട് സ്വദേശിക്കും മൂപ്പൈനാട് പഞ്ചായത്ത് സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവർ ഗൾഫിൽനിന്നും വന്നവരാണ് ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നായി